യുടെ വ്യാപാര പങ്കാളിത്തം സഹായകരമാകുമെന്ന് യു

ഇ പ്രധാനമന്ത്രി യു എ ഇയുട്ടെ പ്രമോന്നത സിവിലിയൻ ബഹുമതി ഓർഡർ ഓഫ് സായിദ് നരേന്ദ്ര മോദിക്ക് സമ്മാനിച്ചു

രാജ്യങ്ങളെക്കാൾ മെച്ചമാണെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ

അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി

ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പി

ആരോഗ്യനില തൃപ്തികര മല്ലാതിരുന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ് ലോക്സഭാ തിരഞ്ഞെടു പ്പിൽ നിന്ന് അദ്ദേഹം വിട്ടുതിന്നിരുന്നു ഒരാഴ്ചയിലധികമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദും പ്രധാനമന്ത്രി ന്റരേന്ദ്ര മോദിയും ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും പ്പിവിധ കക്ഷി നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ ജെയ്റ്റ്ലിയെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു

ഭൌതികദേഹം നാളെ ന്യൂഡൽഹിയിലെ നിഗം ബോധ്ഘട്ടിൽ സംസ്കരിക്കുമെന്ന് ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ അറിയിച്ചു

ജെയ്റ്റ്ലിയുടെ രാഷ്ട്രീയ പൊതുജീവിതത്തെക്കുറിച്ച് രണ്ട് ദശാബ്ദക്കാലം ബിജെപിയുടെ കരുത്തുറ്റ നേതാവായും മികച്ചു പാർലമെന്റേറിയനായും പ്രഗത്ഭനായ ഭരണാധികാരി യായും തിളക്കമാർന്ന പ്രവർത്തനമാണ് അരുൺ ജെയ്റ്റ്ലി കാഴ്ച വച്ചത്

വാജ്പേയി മന്ത്രിസഭയിലും നരേന്ദ്ര മോദി മന്ത്രിസഭയിലും അംഗമായിരുന്ന അരുൺ ജെയ്റ്റ്ലി വാർത്താ വിതരണ പ്രക്ഷേപണം നിയമം ഓഹരി വിറ്റഴിക്കൽ കമ്പനി കാര്യം വാണിജ്യം വ്യവസായം പ്രതിരോധം ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്

ഒന്നീം മോദി മന്ത്രിസഭയിൽ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരുന്ന സ്റ്മയ്ത്താണ് രാജ്യത്ത് നോട്ടു നിരോധനവും ജി

വൃക്കരോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ് ഏപ്രിൽ മുതൽ നാലു മാസം മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ പ്രധാന്ത്രിയായിരുന്ന ജെയ്റ്റ്ലി ചികിത്സ യുടെ ഭാഗമായി അമേരിക്കയിൽ പോയിരുന്നതിനാൽ അവസാന ബജറ്റ് അവതരിപ്പിക്കാൻ ്കഴിഞ്ഞിരുന്നില്ല മന്ത്രി പീയുഷ് ഗോയലാ ണ് അന്ന് ജെയ്റ്റ്ലിക്കുപകരം ബജറ്റ് അവതരിപ്പിച്ചത്

പ്രമുഖ നേതാക്കൾ ജയ്റ്റ്ലിയുടെ ദേഹവിയോഗത്തിൽ ദുഖം രേഖപ്പെടുത്തി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അരുൺ ജയ്റ്റ്ലിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മികച്ച അഭിഭാഷകനും കഴിവുറ്റ പാർലമെന്റേറിയനും പ്രാപ്തനായ മന്ത്രിയുമായിരുന്ന ജയ്റ്റ്ലി രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ സംഭാവനയാണ് നൽകിയിട്ടുളളതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുസ്മരിച്ചു തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ശ്രീ ജയ്റ്റ്ലി പെരുമാറിയിരുന്നതെന്നും ശ്രീ കോവിന്ദ് അഭിപ്രായപ്പെട്ടു രാജ്യത്തിന് അപരിഹാര്യ നഷ്ടമാണ് ജയ്റ്റ്ലിയുടെ മരണം വരുത്തിയിട്ടുള്ളതെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പറഞ്ഞു

തിക്ഞ്ഞ പ്രതിബദ്ധതയോടെയാണ് ജയ്റ്റ്ലി ഭരണനിർവ്വഹണം നടത്തിയിരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു

ജയ്റ്റ്ലിയുടെ ആകസ്മിക വിയോഗ ത്തിലൂടെ ഉത്തമസുഹൃത്തിനെയാണ് നഷ്ടമായിരിക്കുന്നതെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു ജയ്റ്റ്ലിയുടെ വിയോഗം ഞെട്ടലുള വാക്കിയെന്ന് കേന്ദ്രവാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ശ്രീ അമിത്ഷാ ശ്രീ രാജ്നാഥ് സിംഗ് തുടങ്ങിയ നിരവധി കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസ് അദ്ധ്യക്ഷ സോണിയാഗാന്ധി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി വിവിധ കക്ഷികളിലെ നേതാക്കൾ അരുൺ ജയ്റ്റ്ലിയുടെ നിര്യാണത്തിൽ ദുഖം രേഖപ്പെടുത്തി

ഇ യ്ക്ക് നിർണ്ണായക പങ്കുവഹി ക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

എ ഇ ബന്ധം ഏറ്റവും ശക്തമായ നിലയിലാണിപ്പോൾ

ഇ യുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഏറ്റുവാങ്ങി

എ

ഈ ്രന്ടപ്പടികൾ ആഗോള നിക്ഷേപക ലക്ഷ്യസ്ഥാനത്തെ ഇന്ത്യിടെ സ്ഥിതി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് യു

ആപത്തിന് സാധൃതയുള്ള പ്രദേശത്ത് നിന്ന് ജനങ്ങൾ മാറി താമസിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ ജില്ലയിലുണ്ടായ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിലും മികച്ച സേവനം ചെയ്തവരെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് മഴക്ക് സാധ്യത

സിന്ധു സ്വിറ്റ്സർലന്റിലെ ബേസലിൽ നടക്കുന്ന ബി

ഇത് മൂന്നാം തുവണ്യൊണ് സിന്ധു ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്നത്

തമിഴ്നാട്ടിലെ കോയമ്പത്തൂരി ൽ സലിം അലി പക്ഷി നിരീക്ഷണ കേന്ദ്രം സന്ദർശിച്ച ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഗുവഹത്തിയിൽ വടക്കുകിഴക്കൻ മേഖലാ സമ്മേളനത്തിൽ സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം മ്യന്റാല്യത്തിന്റെ ആഭിമുഖൃത്തിൽ സംഘടിപ്പിക്കുകയും പ്രിക്ഷേപണം നടത്തുകയും ചെയ്യുന്ന പരിപാടികളിൽ പ്രാദ്രേശിക് രംഗത്തെ പ്രസിദ്ധരേയും പ്രമുഖ വ്യക്തികളേയും പങ്കെടുപ്പിക്കണം കിഴക്കൻ ഏഷ്യയുടെ പ്രവേശന കവാടമാണ് വടക്കുകിഴക്കൻ മേഖല സമൂഹ മാധ്യമങ്ങളുടെ സാധ്യത കൂടുതൽ പ്രയോജനപ്പെടുത്തണ മെന്നും ശ്രീ ഖാരെ പറഞ്ഞു

ബസ്തർ ഡിവിഷനിലെ നാരായൺപൂർ ജില്ലയിലായിരുന്നു ഏറ്റുമുട്ടൽ